അഗസ്റ്റ വെസ്റ്റ്ലാന്റ് ഹെലികോപ്ടർ ഇടപാടിൽ ബ്രിട്ടീഷ് ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ കൈമാറാൻ ദുബായ് കോടതി ഉത്തരവിട്ടു

എൽ എ മാരെ അയോഗൃരാക്കിയ കേസിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാദം കേൾക്കും

പി ഹെലികോപ്റ്റർ ഇടപാടിൽ പ്രതിസ്ഥാനത്തുള്ള ബ്രിട്ടീഷ് ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിനെ കൈമാറാൻ ദുബായ് കോടതി ഉത്തരവിട്ടു

ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റും ചേർന്ന് നടത്തിയ അന്വേഷണത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഗവൺമെന്റ് ഗൾഫ് രാജ്യത്തിന് അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് നടപടി

ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹവാലാ പണമിടപാടുകാരൻ പങ്കജ് കപൂറാണ് ഇടപാടുകാരനെന്ന് എൻഫോഴ്സ്മെന്റ അറിയിച്ചു

എ മാരെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാദം കേൾക്കും കേസിൽ ഡൽഹി ഭരണത്തിലെ ഏതാനും ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന എം എൽ എ മാരുടെ ഹർജിയും കമ്മിഷൻ ഇന്ന് പരിഗണിക്കും ആദായം കൈപ്പറ്റുന്ന തസ്തികയിൽ സേവനമനുഷ്ഠിച്ചതാണ് അയോഗ്യത കൽപിക്കാൻ കാരണമായത്

ജെ പി ഗവൺമെന്റ് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് കോൺഗ്രസ് ഇതിനായി നിയമസഭ ഉടൻ വിളിച്ചുചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ

ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസില്ല് ചുന്ദ്കാന്ത് കാവ്ലേക്കർ പിന്നീട് വാർത്താ ലേഖകരോട് പുറഞ്ഞു സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോങ്ങ്ഗ്ഗ്ഗസിന് സംസ്ഥാനത്ത് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അടുത്ത മൂന്നു ദിവസത്തിനകം തീരുമാന്നമെടുക്കുമെന്ന് ഗവർണർ അറിയിച്ചതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാരൃ സമിതി നിയമനത്തിന് അംഗീകാരം നൽകി

കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സെക്രട്ടറിയായി മുതിർന്ന ഐ

എസ് ഓഫീസർ അനിന്തോ മജുംഭാരിനെയും നിയമിച്ചു

മാൾട്ടയിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയാണ് ഉപരാഷ്ട്രപതി റുമാനിയയിൽ എത്തിയത് വിശദാംശങ്ങളുമായി ലിഖിത

വെങ്കയ്യ് നായിഡു ഇന്ന് പ്രതിനിധിതല ചർച്ച നടത്തും തുടർന്ന് നിർവധി സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും പിന്നീട് റുമാനിയൻ പ്രസിഡന്റ് ക്ലോസ് വെർണർ ലൊഹാനിസ്സുമായി ശ്രീ വെങ്കയ്യ നായിഡു പ്രതിനിധിതല ചർച്ച നടത്തും റുമാനിയൻ പ്രധാനമന്ത്രി വിയോറി ചഡാൻസില ചേംബർ പ്രസിഡന്റ് നിക്കോളെ ലിവി ഡ്രാഗ്ന എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

സന്ദർശനത്തിന്റ അവസാന ദിവസം റുമാനിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് അദ്ദേഹം ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും മേഖലാ സുരക്ഷ വാണിജ്യം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ള വിവിധ വികസന പദ്ധതികൾ തുടങ്ങിയവ ചർച്ചാവിഷയങ്ങളാവും അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ തുടങ്ങിവച്ച അടിസ്ഥാന സൌകര്യ വികസന പരിപാടികൾ ഇരു നേതാക്കളും വിലയിരുത്തും സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ ഇന്ത്യാ ഫൌണ്ടേഷൻ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റിന് പൌരസ്വീകരണം നൽകും

കർണ്ണാടക മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി പു്തുച്ചേരി മുഖ്യമന്ത്രി നാരായണ സ്വാമി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി പനീർസെൽവം തുടങ്ങിയവർ പങ്കെടുത്തു മൽസ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ പെനിൻസുലാർ ടൂറിസം ട്രെയിനുകൾ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്കോളർഷിപ്പുകൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ അവലോകനം ചെയ്തു

പുനരുൽപാദന ഊർജ്ജസാധ്യതകളും ചർച്ച ചെയ്തു

നാറ്റോ അംഗരാഷ്ട്രങ്ങൾക്കു പുറമെ കോം കാസാ കരാറിൽ ഒപ്പുവയ്ക്കുന്ന ഏകരാഷ്ട്രമാണ് ഇന്ത്യ എന്നത് കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു

എസ്സിന്റെ പ്രതിരോധ സജ്ജീകരണങ്ങൾ കൂടുതൽ ലഭ്യമാകാൻ കരാർ വഴിതെളിക്കും

പ്രതിരോധ സെക്രട്ടറി ജയിംസ് മാറ്റിസും സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോയും ഈ മാസമാദ്യം ന്യൂഡൽഹിയിൽ പ്രതിരോധമന്ത്രി നിർമ്മല്പാസീതാരാമനും വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജും തൃമ്മിൽ നടത്തിയ പ്തസ് ടു ചർച്ചയിലാണ് ചരിത്രപരമെന്ന് വിശ്രേഷിപ്പിക്കുന്ന കോം കാസാ കരാറിൽ ഒപ്പുവച്ചത്

വിശദാംശങ്ങളുമായി ലിഖിത

എന്നാൽ ഇരുവരും അടുത്തടുത്ത ഓവറുകളിൽ പുറത്തായത് ഇന്ത്യയ്ക്ക് കരുത്തുപകർന്നു പിന്നീട് ഇന്ത്യൻ ബൌളർമാർ പിടിമുറുക്കിയതോടെ ഹോങ്കോങ്ങ് തകർന്നു

ഇന്ത്യയ്ക്കുവേണ്ടി അര്ങ്ങേറ്റക്കാരനായ ഖലീൽ അഹമ്മദ് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കി

ആദ്യ മത്സരത്തിൽ പാക്കിസ്ഥാനോട് പരാജയപ്പെട്ട ഹോങ്കോങ്ങ് ഇതോടെ ടൂർണമെന്റിൽ നിന്നും പുറത്തായി ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഇന്ന് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും ന്യൂസ് ടെസ്ക് ആകാശവാണി

ജപ്പാന്റെ സെയ്നാ കവാകാമിയെ നേരിട്ടുള്ള ഗയിമുകൾക്കാണ് സിന്ധു തോൽപ്പിച്ചത്

സെമിയിൽ യുക്രെയ്നിന്റെ ഡിമിത്രോ ഗാർഡബിയെ പരാജയപ്പെടുത്തിയാണ് സജന്റെ ഫൈനൽ പ്രവേശം

ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അന്വേഷണ സംഘം ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്

വിജയരാഘവൻ തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തെളിവുകൾ ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേസ് എഴുതിത്തള്ളണമെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇങ്ങനെ കേസ് എഴുതി തള്ളരുതെന്നും അന്വേഷണം തുടരണമെന്നും ആവശ്യപ്പെട്ടാണ് എൽഡിഎഫിനു വേണ്ടി കൺവീനർ എന്ന നിലയിൽ ഹർജി നൽകിയത് ഈ ഹർജിയെ സാധൂകരിക്കുന്നതാണ് വിധിയെന്നും അദ്ദേഹം പറഞ്ഞു

ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് കളക്ടർമാർ തഹസീൽദാർമാർ എന്നിവരിൽ നിന്ന് സ്കെൽ റിപ്പോർട്ട് തേടും

വിവിധ സർവ്വകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗത്തിൽ മന്ത്രി കെ

ബി ഐയും എൻഫോഴ്സ്മെന്റും ആരെയും പീഡിപ്പിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗ് ബംഗളുരുവിൽ പറഞ്ഞു

എസ്

സാംബ ജില്ലയിലെ ആന്താരാഷ്ട്ര അതിർത്തിയായ രാംഗഡ് മേഖലയിലാണ് പാക് സേന വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയത്

എസ് എഫ് സംഘം പ്രദേശത്ത് പട്രോളിംഗ്ര് നിട്ടത്തുന്നതിനിടെയാണ് വെടിവയ്പുണ്ടായത്

മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്